ശതമാനമെന്ന റെക്കോർഡ് പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിൽ കുറവ് തിരുവനന്തപുരത്ത്

പ്രവാസികളുടെ സമ്പാദൃം നാടിന്റെ സൌഭാഗൃമെന്ന് ്യന്നമന്ത്രി തോമസ് ഐസക്

നടത്തുന്ന ബസുകൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്

വീഴ്ചപറ്റിയെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബും ബാംഗ്ലൂരും ഏറ്റുമുട്ടും

വിശദാംശങ്ങളുമായി സീന ആന്റണി

കണ്ണൂരാണ് ഏറ്റവും കൂടുതൽപേർ വോട്ട് രേഖപ്പെടുത്തിയത്

വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറുകളും മറ്റു പ്രശ്നങ്ങളും കാരണം ചില ബൂത്തുകളിൽ രാത്രി വൈകിയുട്ട് പ്പോളിംഗ് നടന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വെള്ളിയാഴ്ച വരെ പത്രിക പിൻവലിക്കാം

സമരസമിതി നേതാക്കളായ എം

കുഞ്ഞിക്കണാരൻ രാജേഷ് ഉൾപ്പടെ നേതാക്കളെ അറസ്റ്റു ചെയ്തു ഇരുന്നൂറോളം സമരാനുകൂലികൾ ഇപ്പോഴും മിച്ചഭൂമിയിൽ തുടരുന്നു ഇവരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു കല്ലട ബസ് ആക്രമണം കല്ലട ബസിൽ യാത്രക്കാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു

ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലൂീസിന്റെ നിഗമനം അന്വേഷണം തുടരുന്നു

ഇതിനായി മൂന്നംഗ സംഘം രൂപീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ മാർക്ക് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി സ്വകാര്യ ബസ് കമ്പനികളുടെ ഓഫീസുകളിലും യാത്രക്കാരെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തും പദ്ധതിയെക്കുറിച്ച് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ

ചില പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കുമെന്നും അറിയിപ്പുണ്ട്

ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഇന്ന് ആദിത്യപൂജ നടന്നു

ഇന്ന് പുലർച്ചെയാണ് സംഭവം ബൈക്കിൽ പോവുകയായിരുന്ന ഇരുവരെയും ടിപ്പർ ലോറി കൊണ്ട് ഇടിച്ചശേഷം വെട്ടികൊലപ്പെടുത്തുകയായിരുന്നു

പിഴവുകൾ തിരുത്തി പ്രോസിക്യൂഷൻ സമർപ്പിച്ച കുറ്റപത്രമാണ് കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ജൂൺ മാസത്തോടെ സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാക്കിയേക്കും

ഭീകരാക്രമണം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിന് ശ്രീലങ്കൻ ഗവൺമെന്റ് ക്ഷമാപണം നടത്തി കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ സൈന്യം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ പറഞ്ഞു എന്നാൽ സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ ഉടൻ മാറ്റുമെന്ന് പ്രസിഡന്റ് മൈത്രിപാല സിരിസേന പറഞ്ഞു തീവ്രവാദത്തെ ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

സ്വർണവില കുറഞ്ഞു

രാത്രി എട്ടുമണിക്ക് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആറ് വിക്കറ്റ് ജയം